സ്ടർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രക്യുണ്ടുപട്ടമായിട്ടാണ് സർവീസ് നടത്തുക നാളെയും മറ്റന്നാളും രാവില്ലൊ മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും രണ്ടുമണി മുതൽ രാത്രിച്ചുപ്പെരെയുമാണ് സർവീസ് ഉച്ചയ്ക്ക് ഒന്നു മുതൽ രണ്ട് വരെ ഇടവേളയാണ്